കോൺഗ്രസ് നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കൂടുതൽ വിവരങ്ങളുമായി ദീപു

രാജസ്ഥാനിലെ ജോധ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

ഹിന്ദുത്വത്തെ സംബന്ധിച്ച തന്റെ അറിവിനെ ചോദ്യം ചെയ്ത കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചു രാജസ്ഥാനിൽ ഒന്നിടവിട്ട് രാഷ്ട്രീയപാർട്ടികൾ അധികാരത്തിലെത്തുന്ന പതിവിന് ഇക്കുറി മാറ്റമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ ഇന്ന് മേവാറിലും ഹരോട്ടിയിലും പരൃടനം നടത്തി ബിജെപി അധികാരം നിലിനിർത്തുമെന്ന് ചിറ്റോർഗഡിൽ നടന്ന റാലിയിൽ അമിത്ഷാ പറഞ്ഞൂ

നേതാവ് മായാവതി മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിവരും പ്രചരണരംഗത്തുണ്ട് തെലങ്കാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ എൽ

സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഗഡ്വാളിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തു

ആഗോള സമ്പദ്ഘടനയിൽ ലോക കസ്റ്റംസ് ഓർഗനൈസേഷന്റെ സേവനങ്ങൾ വിലപ്പെട്ടതാണെന്ന് ജയ്റ്റ്ലി പറഞ്ഞു

വർദ്ധിച്ച തോതിലുള്ള വ്യാപാരം ആഗോള സമ്പദ്ഘടനയെ മാത്രമല്ല തങ്ങളുടെ സ്വന്തം സമ്പദ്ഘടനയെയും സഹായിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള രാജൃങ്ങൾ തിരിച്ചറിഞ്ഞു വരികയാണ് ലോകത്തെമ്പാടുമുള്ള മികച്ച മാതൃകകൾ സ്വീകരിച്ചു കൊണ്ട് അതിർത്തി കടന്നുള്ള വ്യാപാരം സുഗമമാക്കുന്നതിന് ഗവണ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അരുൺ ജയ്റ്റ്ലി പറഞ്ഞു

പുൽവാമ ജില്ലയിലെ അവന്തിപോര പാംപോർ എന്നിവിടങ്ങളിൽ നിന്നാണ്ട് ഇവർ പിടിയിലായത്

ഇന്ന് പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈനൃം തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഭീകരർ സൈന്യത്തിനു നേരെ നിറയൊഴിച്ചത് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ആൾപ്പാർപ്പുള്ള ഇവിടെ കുറഞ്ഞത് മൂന്ന് ഭീകരരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന നിഗമനത്തിലാണ് സൈന്യം

സഭാനടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ സഭാന്തരീക്ഷം ശബ്ദായമാനമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതിനാൽ സഭാ നടപടികൾ തടസപ്പെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭ ആരംഭിച്ചപ്പോൾ പ്രോദ്യോത്തരവേളയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ശബ്രീമല് വിഷയത്തിൽ മൂന്ന് യു ഡി എഫ് എം

ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ ചില പരാമ്ർശ്ജ്ങ്ങൾ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു

ചോദ്യപേപ്പർ ചോർച്ചുയെ തുടർന്ന് റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്തുമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാബത്ത നല്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നേരത്തെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പൊലീസ് കോൺസ്റ്റബിൾമാരുടെ നിയമനത്തിനായുള്ള എഴുത്തു പരീക്ഷ ഗുജറാത്ത് പൊലീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് റദ്ദാക്കിയിരുന്നു

സംസ്ഥാന മന്ത്രിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ കൻവാർജി ബൌവലിയയ്ക്കെതിരെ കോൺഗ്രസിലെ അവ്സാർ നാക്കിയ മത്സരിക്കും

ദുരന്തത്തിൽ മരിച്ചവർക്ക് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഇന്നലെ സ്മരണാഞ്ജലി അർപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണം വ്യാവസായിക സുരക്ഷ എന്നിവയുടെ ആവശ്യകതയിലേക്ക് രാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഭോപ്പാൽ ദുരന്തം കാരണമായതായി ഗവർണ്ണർ പറഞ്ഞു

അഞ്ചു ലക്ഷത്തോളം പേരെയാണ് ഈ വിഷവാതക ചോർച്ച ബാധിച്ചത്

നിലവിൽ അഞ്ച് വർഷത്തേയ്ക്കായി അനുവദിച്ചിട്ടുള്ള ക് ഇർട്ടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തുക ലോക്യി മൂജ്യങ്ങൾക്ക് കാലാവസ്ഥാ സംരക്ഷണത്തിന്റെ ആവശ്യക്ത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനയാണിത്

കമ്പനിയുമായി ഇത് സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നല്കുന്നതാണ് മേഘ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെന്ന് മേഘാലയ ആരോഗ്യ വകുപ്പു മന്ത്രി അലക്സാണ്ടർ ലാലു ഹെക് പറഞ്ഞു സംസ്ഥാന കേന്ദ്ര ഗവണ്മെന്റ് ജീവനക്കാർ ഒഴികെയുള്ളവരാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്

ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ്ത്തിന്റെ ലക്ഷ്യം

ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി മികച്ച സേവനം കാഴ്ചവച്ച സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള സമ്മാനങ്ങൾ ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിൽ സമ്മാനിക്കും

ഖത്തർ ഊർജ്ജ മന്ത്രി സാദ് അൽ കാബിയാണ് ഇക്കാര്യം അറിയിച്ചത് ജനുവരിയിൽ തീരുമാനം പ്രാബല്യത്തിലാവുമെന്നും അൽ കാബി അറിയിച്ചു

ഇന്ത്യൻ സമ്പദ് വൃവസ്ഥയുടെ ഭൂരിഭാഗം മേഖലകളിലും കഴിവും ശേഷിയുമുള്ള കർമ നിരതരെയാണ് ആവശ്യമെന്നും അദ്ദേഹം ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യൻ യുവത്തിന്റെ കഴിപ്പ് ്തിരിച്ചറിഞ്ഞ് പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഫ്രധാന്റമന്ത്രി സ്കിൽ ഇന്ത്യ പദ്ധതി ആവിഷ്ക്കരിച്ചതെന്നും അദ്ദേഷം പറഞ്ഞു ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് ്യുവാക്കളുടെ പ്രവർത്തന മികവും അറിവും ഉപയോഗപ്പെടുത്താൻ അവസരമൊരുക്കുമെന്നും മന്ത്രു പറഞ്ഞു

നാവിക ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗൾഫ് ഓഫ് എഡനിൽ ആഗോളതലത്തിൽ തന്നെ തടസ്സമായി നിലകൊണ്ട കൊള്ളക്കാരെ അമർച്ച ചെയ്യാൻ സാധിച്ചത് ഇന്ത്യൻ നാവിക സേനയ്ക്ക് അഭിമാനമാണ്

ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗ്ഗോപ്യ് ജസ്റ്റീസുമാരായ എസ് കെ കൌൾ കെ

ജ്യോസ്ഫ് എന്നിവരടങ്ങിയ ബഞ്ചാണ് ഉത്തരവിട്ടത്